ഗുജറാത്തിലെ ജാംനഗറിലുള്ള ആയുർവേദ സർവകലാശാല ക്യാമ്പസിലെ സ്ഥാപനങ്ങളെ ചേർത്ത് ദേശീയ സ്ഥാപനത്തിന്റെ പദവി നൽകാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം

ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇറാഖിലേയ്ക്കുള്ള അത്യാവശ്യമില്ലാത്ത യാത്ര ഒഴിവാക്കണമെന്ന് ഇന്ത്യ

കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ മന്ത്രിസഭായോഗത്തിനു ശേഷം മാധൃമങ്ങളെ അറിയിച്ചതാണ് ഇക്കാരൃം ആയുർവേദ ചികിത്സാ മേഖലയുടെ വളർച്ചയ്ക്ക് തീരുമാനം സഹായകമാകുമെന്നും മന്ത്രി പറഞ്ഞു

ഖനന മേഖലയുടെ വളർച്ചയ്ക്ക് നിയമ ഭേദഗതി വഴിയൊരുക്കുമെന്ന് കേന്ദ്ര കൽക്കരി ഖനി വകുപ്പ് മന്ത്രി പ്രഹ്ളാദ് ജോഷി പറഞ്ഞു ഖനന ലേലത്തിനുള്ള വൃവസ്ഥകൾ ഇതോടെ ലളിതമാകുമെന്നും മന്ത്രി അറിയിച്ചു

കണ്ടെടുക്കപ്പെട്ട രണ്ട് അസ്ഥികൂടുങ്ങൾ ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയുമാണെന്ന് ്ഷ്യീപ്പ് ജസ്റ്റിസ് എസ്

അതിക്രമവും പീഡനവുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതായി അറ്റോർണി ജനറൽ കെ

കൊലചെയ്യപ്പെട്ടു എന്നു കരുതുന്ന കുട്ടികൾ അന്വേഷണത്തിൽ ജീവിച്ചിരിപ്പുള്ളതായി അറിയുന്നു പ്രാരംഭ നടപടികൾ പൂർത്തിയായ മറ്റ് നാല് കേസുകൾ പിന്നീട് തെളിവില്ലാത്തതിന്റെ പേരിൽ അവസാനിപ്പിച്ചിരുന്നു

യുവിൽ സമാധാനം നിലനിർത്താൻ കൈകൊണ്ട നടപടികളെ സംബന്ധിച്ച് വൈസ് ചാൻസിലർ മാനവവിഭവശേഷി ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് വിശദീകരണം നൽകിയതായി ആകശാവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്തു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ടെന്നും വൈസ് ചാൻസിലർ പറഞ്ഞു

ഒരു റിപ്പോർട്ട്

സാങ്കേതിക തകരാറാണ് അപകടത്തിനു കാരണമെന്ന് കരുതപ്പെടുന്നു

പൈലറ്റിന് നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് അപകടം സംഭവിച്ചതെന്ന് ഇറാനിലെ റോഡ് ട്രാൻസ്പോർട്ട് അതോറിട്ടി വക്താവ് ടഹ്റാനിൽ പറഞ്ഞു

സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിനു തൊട്ടുപിന്നാലെയാണ് വിമാനാപകടം ഉണ്ടായത്

കൃഷി വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പങ്കുവയ്ക്കാൻ ധനമന്ത്രി നിർമല സീതാരാമനും ജനങ്ങളോട് അഭ്യർത്ഥിച്ചു വിവിധ മേഖലയിലെ പ്രതിനിധികളുമായി ധനമന്ത്രി ബജറ്റിന് മുന്നോടിയായി ചർച്ചകൾ നടത്തിയിരുന്നു

പണിമുടക്കിന് ആൾ ഇന്തൃ ബാങ്ക് എംപ്പോയീസ് അസോസിയേഷൻ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നതായി ജനറൽ സെക്രട്ടറി സി എച്ച് വെങ്കിടാചലം അറിയിച്ചു

പശ്ചിമ ബംഗാളിൽ വിവിധ ഭാഗങ്ങളിൽ ബന്ദനുകൂലികൾ സൃഷ്ടിച്ചു മാർഗ തടസ്സങ്ങൾ റോഡ് റ്റെയിൽ ഗതാഗതത്തെ ബാധിച്ചു വിവിധ സ്ഥലങ്ങളിൽ അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നൂറ് കണക്കിന് പണിമുടക്ക് അനുകൂലികളെ പൊലീസ് അറസ്റ്റ് ചെയ്തു

ഏതാനും സ്വകാര്യവാഹനങ്ങളാണ് നിരത്തിലിറങ്ങിയത്

എസ് ആർ ടി സി വിവിധ ഡിപ്പോകളിൽ നിന്ന് ശബരിമല സർവ്വീസ് നടത്തി

ഐ എസ് എഫിന്റെ പ്രത്യേക വിഭാഗത്തെ നിയോഗിക്കുന്നതിനുള്ള സാധൃത ആരായാൻ സുപ്രീംകോടതി കേന്ദ്രഗവണ്മെന്റിനോട് ആവശ്യപ്പെട്ടു തീസ് ഹസാരി കോടതി വളപ്പിൽ പൊലീസുകാരും അഭിഭാഷകരും കഴിഞ്ഞ വർഷം നവംബറിൽ ഏറ്റുമുട്ടിയിരുന്നു ഇത്തരം സംഭവങ്ങൾ സി

എഫിനെ നിയോഗിച്ചാൽ ഒഴിവാക്കാമായിരുന്നുവെന്ന് ജസ്റ്റിസ് എസ്

കോടതി നിയോഗിച്ച അമിക്കസ്ക്യൂറി സിദ്ധാർത്ഥ് ലുത്ര അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി

കൂടുതൽ വിവരങ്ങളുമായി സുലൈമാൻ

ജമ്മു കശ്മീർ കേന്ദ്ര വകുപ്പിനോട് ഭരണ പ്രദേശമായി മാറിയതിനാൽ എല്ലാ നിയമന നടപടികളിലും കേന്ദ്ര സർവ്വീസിന് സമാനമായ നിയമങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ ദ്രുതഗതിയിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

എല്ലാ ഗവണ്മെന്റ ഡിപ്പാർട്ട്മെന്റുകളിലേയും ജോലികൾ സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക വിഭാഗത്തെ നിയോഗിച്ചതായും അദ്ദേഹം പറഞ്ഞു പ്രൊഫഷണൽ എൻട്രൻസ് പരീക്ഷാബോർഡിന്റെ ഭരണപരമായ അധികാരവും ഭരണ പരിഷ്ക്കാര പരിശീലന വകുപ്പിനായിരിക്കുറ് ന്യൂസ് ഡസ്ക് ആകാശവാണി

എല്ലാം നന്നായി പോകുന്നുവെന്ന് ഡോണൾഡ് ട്രംപ് ട്വീറ്റ് ചെയ്തു

ഘോം പ്രവിശ്യയിൽ ആയിരക്കണക്കിന് സന്ദർശകരുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്